പുനപരിശോധനാ ഹർജികളിൽ സുപ്രീംകോടതിയുടെ ഒമ്പതംഗ ബഞ്ച് വാദം കേൾക്കില്ല

റോഡുകളിൽ വിശ്രമ കേന്ദ്ര ഒരു്ക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

അവശിഷ്ടങ്ങൾ നീക്ക്ുന്ന മഹായജ്ഞത്തിന് ഉടൻ തുടക്കമാകും

തിരുവാഭരണങ്ങൾ വഹിച്ചുള്ള ഘോഷയാത്ര അൽപസമയത്തിനകം പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും

ശബരിമല യുവതീപ്രവേശം സുപ്രീംകോടതി ശബരിമല യുവതീ പ്രവേശ വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളിലും റിട്ട് ഹർജികളിലും വാദം കേൾക്കില്ലെന്ന് സുപ്രീംകോടതിയുടെ ഒമ്പതംഗ വിശാല ബെഞ്ച് യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന നിയമപ്രശ്നങ്ങൾ പരിഗണിക്കവേയാണ് നിലപാട് വ്യക്തമാക്കിയത് മതാചാരങ്ങളിൽ ഇടപെടാൻ കോടതിക്ക് അധികാരമുണ്ടോ എന്നതുൾപ്പെടെ ഏഴ് വിഷയങ്ങളിലാണ് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡേ അദ്ധ്യക്ഷനായ വിശാലബെഞ്ച് വാദം കേൾക്കുന്നത് ഒൻപതംഗ ബെഞ്ചിന്റെ വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കുംശബരിമല യുവതീ പ്രവേശനത്തിനെതിരായ പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീംകോടതി തീരുമാനമെടുക്കുക

വാഹനാപകടം കഴിഞ്ഞ വർഷം ഉണ്ടായതിന്റെ പകുതിയായി കുറക്കാനുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റ് ഇതിനായി കർശന പരിശോധന ആവശ്യമാണ്

നിയമം കർശനമാക്കി കൊണ്ട് ബോധവൽക്കരണത്തിലൂടെ അപകടം ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു

മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മേയർ സുമാ ബാലകൃഷ്ണൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആർ ശ്രീലേഖ എന്നിവർ പങ്കെടുത്തു കവചം പദ്ധതി ജനമൈത്രി സുരക്ഷ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന പോലീസ് നടപ്പാക്കുന്ന കവചം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ നിർവഹിച്ചു ദുർബ്ബല വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വീടിനകത്തും പുറത്തും സന്തോഷകരമായ ജീവിതം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കവചം പദ്ധതി നടപ്പാക്കുന്നത് സാമൂഹ്യ സൂരക്ഷ വകുപ്പും പോലീസും ഒത്തുചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് മന്ത്രി കെ

ശൈലജ അധ്യക്ഷയായി മന്ത്രി രാമചന്ദ്രൻ ക്ട്ന്നപ്പള്ളി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ

സുമേഷ് എന്നീവൂർ സംബന്ധിച്ചു മരട് ഫ്ളാറ്റ് നാല് ഫ്ളാറ്റുകൾ സ്ഫോടനത്തിൽ തകർത്ത മരടിൽ അവശിഷ്ടങ്ങൾ മാറ്റുന്ന മഹായജ്ഞത്തിന് ഉടൻ തുടക്കമാകും ഒരു മാസത്തിനുള്ളിൽ ഇവ പൂർണമായി നീക്കം ചെയ്യാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഫ്ളാറ്റ് പൊളിക്കലിന്റെ ചുമതലയുള്ള സബ്കളക്ടർ സ്നേഹിൽകുമാർ സിങ്ങ് ആകാശവാണിയോട് പറഞ്ഞു

കോൺക്രീറ്റ് മാലിന്യവും കമ്പിയും നീക്കം ചെയ്യുമ്പോൾ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു

വെള്ളം തളിച്ച് പൊടിശലൃത്തിന് ശമനമുണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇക്കാര്യത്തിൽ ഫ്ളാറ്റ് പൊളിച്ച കമ്പനിയാണ് നടപടിയെടുക്കേണ്ടതെന്ന് നഗരസഭ അറിയിച്ചു

മറ്റെന്നാൾ ഘോഷയാത്ര സന്നിധാനത്ത് എത്തും

അഭിഷേകത്തിന് ശേഷം രണ്ടരയോടെ ഹരിവരാസനം പാടി നട അടയ്ക്കും തുടർന്ന് പുലർച്ചെ നാല് മണിക്ക് വീണ്ടും നട തുറക്കും ഉച്ചപൂജ കഴിഞ്ഞ് ഒരു മണിക്ക് നട അടച്ചാൽ വൈകിട്ട് അഞ്ച് മണിക്ക് നട തുറക്കും

ആലപ്പുഴ കോട്ടയം ജില്പകളെ ബന്ധിപ്പിച്ച് അരൂർ മണ്ഡലത്തിലെ വേമ്പനാട്ട് കായലിന് കുറുകെയാണ് പാലം

വിശദാംശങ്ങളുമായി മലപ്പുറത്തു നിന്നും ആകാശവാണി പ്രതിനിധി സുരേഷ്ബാബു

വിക്കറ്റുകൾ തുടർച്ചയായി വീണു

ഉത്സവ ദിനങ്ങളിൽ വിളവെടുക്കാനായി അഞ്ച് മാസം മുമ്പ് തന്നെ ചെങ്കരിമ്പിന്റെ കൃഷി ഇറക്കിയിരുന്നു

ജയരാജൻ കേന്ദ്ര കൈത്തറി വികസന കോർപറേഷന്റെയും സംസ്ഥാന കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റിന്റെയും സഹകരണത്തോടുകൂടി ട്രിവാൻഡ്രം സ്പിന്നിങ്ങ് മില്ലിൽ ആരംഭിക്കുന്ന നൂൽ ബാങ്ക് നാളെ തുറക്കും മന്ത്രി ഇ

ജയരാജൻ ഉദ്ഘാടനം ചെയ്യും

ഐ കളിയിക്കാവിളയിൽ എ

നെയ്യാറ്റിൻകരയിൽ പ്രതികളെ കണ്ടതായുള്ള വിഡിയോ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഉന്നത അന്വേഷണ സംഘം സ്ഥലത്ത് പരിശോധന നടത്തി കഴിഞ്ഞ ദിവസം സംഭവവുമായി ബന്ധപ്പെട്ട് നാലുപേർ പോലീസിന്റെ പിടിയിലായിരുന്നു

സംഭവവുമായി ബന്ധമുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി തെരച്ചിൽ തുടരുന്നതായി പോലീസ് അറിയിച്ചു

ശൈലജ ദേശീയ യുവജന ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്കു ശേഷം മന്ത്രി കെ

ശൈലജ കണ്ണൂരിൽ നിർവഹിക്കും